ഡൽഹി രാജ്പഥിലെ പ്രധാന ചടങ്ങിൽ അൽപ്പസമയത്തിനകം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയപതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും

കളുടെയും ടാബ്ലോകളും പരേഡിൽ അണിനിരക്കും ചിനൂക്ക് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും സുഖോയ് യുദ്ധവിമാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ലഘു ഹെലികോപ്റ്ററുകളും പരേഡിന്റെ ഭാഗ മാകും ഉപഗ്രഹവേധ ആയുധദൌത്യമായ ശക്തി യുദ്ധടാങ്ക് ഭീഷ്മ എന്നി വയും പരേഡിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിദാനംചെയ്ത ജവാൻമാർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതോടെയായിരിക്കും റിപ്പബ്ലി ക്ദിനാഘോഷച്ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് ഈ വർഷം ആദ്യ മായാണ് അമർജവാൻജ്യോതിക്ക് പകരം ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടു ണ്ട് ഇരുപതിനായിരത്തിലേറെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമേ കേന്ദ്ര സുരക്ഷാ സേനയെയും രാജൃതലസ്ഥാനത്ത് വിനൃസിച്ചു റിപ്പബ്ലിക്ദിന തലേന്നാളായ ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധനചെയ്തു

രാജ്യ നിർമാണ പ്രക്രിയയിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഏറെയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ലോകത്തിന് അഹിം സയുടെയും അക്രമരാഹിത്യത്തിന്റെയും മഹത്തായ ആശയങ്ങൾ പകർന്നുനൽകിയ മഹാത്മജിയുടെ സന്ദേശങ്ങൾ യുവതലമുറ ഒരിക്കലും മറക്കരുതെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു

മികച്ച ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ സദ്ഭരണത്തിന്റെ അടിസ്ഥാന ശിലകളാണ് കഴിഞ്ഞ എഴ് പതിറ്റാണ്ടുകൾകൊണ്ട് ഈ മേഖ ലകളിൽ ഒട്ടേറെ മുന്നേറ്റം നടത്താൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിലും ശക്തമായ നേട്ടം കൈവരിക്കാനാണ് പ്രധാനമന്ത്രി ജൻആരോഗൃ യോജ നയും ആയുഷ്മാൻ ഭാരതും ഉൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹ മ്മദ്ഖാൻ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദൃം സ്വീകരിക്കും വിവിധ സേനാ വിഭാഗങ്ങളും എൻ

സി സ്കൌട്സ് സ്റ്റുഡന്റ് സ് പോലീസ് കാഡറ്റ് വിഭാഗങ്ങളും പരേഡിലെ മാർച്ച്പാസ്റ്റിൽ പങ്കെടുക്കും കോഴി ക്കോട് ബീച്ചിൽ മന്ത്രി ടി

രാമകൃഷ്ണനും കണ്ണൂരിൽ മന്ത്രി രാമച ന്ദ്രൻ കടന്നപ്പള്ളിയും പതാക ഉയർത്തും പാലക്കാട്ട് മന്ത്രി എ

ബാലൻ തൃശൂരിൽ മന്ത്രി വി

സുനിൽകുമാർ എന്നിവരും എറ ണാകുളത്ത് മന്ത്രി എ

മൊയ്തീനുമാണ് പതാക ഉയർത്തുന്നത് കാസർകോട്ട് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊല്ലത്ത് മന്ത്രി ജെ മേഴ്സി ക്കുട്ടിയമ്മ ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരൻ ഇടുക്കിയിൽ മന്ത്രി എം

മണി തുടങ്ങിയവരും പതാക ഉയർത്തും വയനാട്ടിൽ മന്ത്രി എ

ശശീന്ദ്രനും മലപ്പുറത്ത് മന്ത്രി കെ

ജലീലും കോട്ടയത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പത്തനംതിട്ടയിൽ മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രനും പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും

മുൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് ഫെർണാണ്ടസ് സുഷമാസ്വരാജ് അരുൺ ജെയ്റ്റ്ലി എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മ വിഭൂഷൺ ലഭിച്ചത് പേജാവർ മഠത്തിലെ സ്വാമി വിശ്വേശ തീർഥയ്ക്കും മരണാനന്തരം പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു മൊറീഷ്യസ് മുൻ പ്രധാന മന്ത്രി അനിരുദ്ധ് ജുഗുന്നാഥ് ഹിന്ദുസ്ഥാനി വയലിൻ വിദ്വാൻ ചന്നു ലാൽ മിശ്ര ബോക്സർ മേരികോം എന്നിവരും പത്മവിഭൂഷൺ നേടി ഗോവ മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ നിയമപണ്ഡിതൻ എൻ

മാധവമേനോൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു ആത്മീയാചാര്യൻ ശ്രീ എം പി

സസ്യശാസ്ത്രജ്ഞൻ ഡോ

മണിലാൽ ഹിന്ദി പണ്ഡിതൻ ഡോ

ചന്ദ്രശേഖ രൻ നായർ നോക്കുവിദ്യാ പാവകളി കലാകാരി കോട്ടയം മൂഴിക്കൽ പങ്കജാക്ഷി അരുണാചലിൽ സാമൂഹൃപ്രവർത്തകനായ എം

കുഞ്ഞോൻ ബോംബേ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മലയാളികളായ ലളിത സരോജം എന്നിവർക്കാണ് പത്മശ്രീ

ഡി എഫ് ഇന്ന് സംസ്ഥാനത്ത് മനുഷ്യ മഹാ ശൃംഖല തീർക്കും ഭരണഘടന സംരക്ഷിക്കണമെന്നും ദേശീയ പൌരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നും ആവശ്യം ഉന്നയിച്ചാണ് കാസർക്കോട് മുതൽ തിരുവനന്തപുരം കളിയിക്കാവിള വരെ ദേശീയപാതയിൽ മനുഷ്യശൃംഖല തീർക്കുന്നത് വൈകിട്ട് നാലിന് ഭരണഘടനയുടെ ആമുഖം വായിച്ചശേ ഷം പ്രതിജ്ഞാചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെ യ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻകിബാത്ത് വൈകിട്ട് ആറ് മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും ആകാശവാണി നിലയങ്ങൾ മൻകിബാത്തിനുശേഷം പരിപാടിയുടെ മല യാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും ചൈനയിലെ കൊറോണ വൈറസ് മേഖലയിൽനിന്നെത്തിയ ഒരാ ളെക്കൂടി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊ ലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു

ഇവരിലാർക്കും കൊറോണ ലക്ഷണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജാഗ്രതയുടെ ഭാഗമായാണ് നിരീക്ഷണമെന്ന് അധികൃതർ വ്യക്തമാക്കി

അഞ്ച് കളികളുടെ പരമ്പ രയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു വിജയം ഐ ലീഗ് ഫുട്ബോളിലെ ഹോം മത്സരത്തിൽ കോഴിക്കോട്ട് ഇന്ന് ഗോകുലം കേരള എഫ്

ഗോവ ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടും വൈകിട്ട് ഏഴിനാണ് മത്സരം ഇന്നത്തെ ടിക്കറ്റ് വരുമാനം ഫുട്ബോൾ മത്സരത്തിനിടെ കുഴഞ്ഞുവീണ് മരിച്ച ധനരാജിന്റെ കുടുംബസഹായ നിധിയിലേക്ക് നൽകുമെന്ന് ഗോകുലം കേരള അറിയിച്ചു

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോവയോട് തോൽവി

ഗവൺമെന്റ് ഓഫീസുകൾ ജനസൌഹൃദമാക്കി മാറ്റിയാൽ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർണ വിജയത്തിലാകുമെന്ന് മന്ത്രി പി

ആസൂത്രണത്തിന് മാത്രമല്ല നിർവഹണ ത്തിനും സമയബന്ധിതമായ പൂർത്തീകരണത്തിനും ചിട്ടയായ പ്രവർത്ത നങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മന്ത്രി ആവശ്യ പ്പെട്ടു കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വ്യവസായവകുപ്പ് സഹകരണ സംഘ ങ്ങൾ രൂപീകരിക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ അറിയിച്ചു